മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ പ്രധാന ശക്തിസ്രോ തസ്സാണെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാ ക്കി ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അവ്യക്തതയില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ ഉത്തരവാദിത്വമുള്ള ജനങ്ങളും ഗവൺമെന്റുമാണ് പുതിയ ഇന്ത്യയുടെ മുഖമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പങ്കാ ളിത്ത ജനാധിപത്യമാണ് മുന്നോട്ട്വെക്കുന്നതെന്നും കഴിവ് തെളി യിക്കുന്നവർക്കുള്ളതാണ് പുതിയ ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്ത മാക്കി സ്വകാര്യ ചാനൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ന്യൂസ് കോൺക്ലേവ് ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ഭാഷയുടെ ശക്തി ഉപയോഗിക്കേണ്ടത് ഐക്യത്തിനുവേണ്ടിയാണ് ഇതിനായി മാധ്യമങ്ങൾ ശ്രമിക്കണ മെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ പ്രധാന ശക്തിസ്രോ തസ്സാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

സാമൂഹ്യമാധ്യമങ്ങൾ സ്വന്തം നിലയിലും ഉത്തരവാദിത്വബോധം പ്രകടിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് കോൺക്ലേവിൽ ഗവൺമെന്റും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഓരോ ദിവസം കഴിയുംതോറും നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊ ണ്ടിരിക്കുകയാണെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു യോഗയുടെ പ്രചാരണത്തിനും വികാസത്തിനും മികച്ച സംഭാവന നൽകിയവർക്ക് യോഗ പുരസ്ക്കാര ങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചു

സംസ്ഥാനത്തെയും അതിർത്തിയിലെയും സുരക്ഷാകാര്യ ങ്ങൾ അദ്ദേഹം വിലയിരുത്തും ജമ്മുകശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവി കേന്ദ്രഗവൺമെന്റ് പിൻവലിച്ചതിന് ശേഷം ആദ്യ മായാണ് കരസേനാമേധാവി ജമ്മുകശ്മീർ സന്ദർശിക്കുന്നത്

എക്സ് മീഡിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ സി ബി

അതേസമയം ചിദംബരത്തിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് വിചാരണക്കോടതിയിൽ സി ബി ഐ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് കേസിൽ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ട വിചാരണക്കോടതി ഉത്തരവിനെതിരെ ചിദംബരം സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച പരിഗ ണിക്കുമെന്ന് സുപ്രീംകോടതി വൃക്തമാക്കിയിട്ടുണ്ട്

നടപടി രാജ്യത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കു മെന്നും അദ്ദേഹം ട്വിറ്ററിൽ അവകാശപ്പെട്ടു റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരം കഴിഞ്ഞ ആറുവർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ സാഹ ചരൃത്തിലാണ് കേന്ദ്രഗവൺമെന്റിന്റെ ഈ നടപടിയെന്ന് സുർജ്ജെ വാല കുറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ യാതൊരു അവ്യക്തതയു മില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ശബരി മല വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വിശ്വാസികൾക്കൊ പ്പമാണെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അദ്ദേഹം തിരു വനന്തപുരത്ത് അറിയിച്ചു ശബരിമലയുടെ പേരിൽ പ്രധാനമ ന്ത്രിയും ബി ജെ പി യും വിശ്വാസികളെ വഞ്ചിച്ചുവെന്നും ഇക്കാ ര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും കടകംപള്ളി വിശദീകരിച്ചു

ഐ എമ്മും എൽ

എഫ് ഗവൺമെന്റും എന്ന് വിശ്വാ സികൾക്കൊപ്പമാണെന്നും കടകംപള്ളി വൃക്തമാക്കി രാഹുൽഗാന്ധി എം പി ഇന്ന് മലപ്പുറം പാതാറിൽ നടത്താനി രുന്ന സന്ദർശനം റദ്ദാക്കി മാവോയിസ്റ്റ് ഭീഷണിയുടെ സാഹചര്യ ത്തിൽ സുരക്ഷാപ്രശ്നങ്ങൾ മുൻനിർത്തി പൊലീസ് ആവശ്യപ്പെട്ട ട്ടതനുസരിച്ചാണ് സന്ദർശനം റദ്ദാക്കിയതെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു വഴിക്കടവ് ചുങ്കത്തറ എന്നിവിടങ്ങളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി നാലുദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം നിലനിൽക്കെ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതൃയോഗം പാലായിൽ തുടരുന്നു നിഷാ ജോസ് കെ മാണിയെ യോഗം സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച് നാളെ നടക്കുന്ന യുഡിഎഫ് യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ സൂചിപ്പി ച്ചു നാളെത്തെ യോഗത്തിനു മുൻപ് ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് യുഡിഎഫ് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് യുഡിഎഫിനെ അറിയിക്കാനാണ് ജോസ് കെ മാണി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എൻ

എ യോഗം ഉച്ചകഴിഞ്ഞ് കൊച്ചിയിൽ ചേരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ നാളെ നമനിർദേശ പത്രിക നൽകും

ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു പാല ഉപതെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാന ചർച്ചയാകും സസ്പെൻഷനിൽ കഴിയുന്ന ഡി ജി പി ജേക്കബ് തോമസിനെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് ശുപാർശ നൽകി യതായി റിപ്പോർട്ട് ജേക്കബ് തോമസിനെ തിരിച്ചെടുക്കാനും യോഗ്യതയ്ക്ക് തുല്യമായ പദവി നൽകണമെന്നും കേന്ദ്ര അഡ്മി നിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നേരത്തെ ഉത്തരവിട്ടിരുന്നു

രണ്ട് വർഷമായി ജേക്കബ് തോമസ് സസ്പെൻഷനിലാണ് ഓഖി ദുരന്തത്തിൽ ഗവൺമെന്റ് വിരുദ്ധ പരാമർശത്തിന്റെ പേരി ലാണ് ആദ്യം നടപടിയുണ്ടായത് തുടർന്ന് പുസ്തകമെഴുതിയ തിന്റെ പേരിലും അഴിമതി കണ്ടെത്തിയതിനുമടക്കം സസ്പെൻഷൻ കാലാവധി പലഘട്ടങ്ങളിലായി ദീർഘിപ്പിക്കുക യായിരുന്നു ഗവൺമെന്റ് നടപടിക്കെതിരെ ജേക്കബ് തോമസ് നൽകിയ ഹർജിയിലാണ് കേന്ദ്രഅഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണ ലിന്റെ അനുകൂല വിധിയുണ്ടായത്

എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണച്ചുമത ലയിൽ മാറ്റം സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും

ഈ മത്സരം ജയി ച്ചാൽ ടെസ്റ്റിൽ ഇന്ത്യയെ കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്തമാക്കും

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി തയ്യാറാക്കിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരവും നെഹ്റു ട്രോഫിയാണ്

കുടുംബശ്രീ വനിതാപൊലീസ് ടീമുകളും ജലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് മലബാർ റിവർ ക്രൂയീസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ടൂറിസ്റ്റ് യാത്രാ ബോട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ കണ്ണൂർ പറശ്ശിനി പാലത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കണ്ണൂർ മയ്യിൽ ആസ്ഥാനമായ റോയൽ ടൂറിസം ഡെവലപ്പമെന്റ് കോ ഓപ്റേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ബോട്ട് സർപ്പീസ് ആരംഭിക്കുന്നതെന്ന് ചെയർമാൻ ടി

ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹരിത കേരള മിഷന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ നടപ്പി ലാക്കുന്ന പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ കണ്ണൂർ കടമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹി ക്കും രാവിലെ കടമ്പൂർ കുഞ്ഞുമോലോം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി വി

സുനിൽകുമാർ അധ്യക്ഷ നാകും കാർഷിക വികസന ക്ഷേമവകുപ്പ് മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് കേരള ഭൂവികസന കോർപ്പറേഷൻ നബാർഡ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തി ലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ഓണം വിപണി മറ്റ ന്നാൾ ആരംഭിക്കും

മോഹനൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

സഹകരണ ഓണ വിപണിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ ചൊവ്വയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

പ്രവർത്തകൻ എടച്ചോളി പ്രേമൻ വധക്കേസിലെ പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു

പാളത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കൊങ്കൺ പാത വഴി തടസപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇന്ന് വൈകിട്ടോടെ പുനസ്ഥാപി ച്ചേക്കും

ഇന്ന് മുതൽ തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് സാധാരണ റൂട്ടിൽ സർവീസ് നടത്തു മെന്ന് റെയിൽവെ അറിയിച്ചു

മണ്ണുത്തി വടക്കാഞ്ചേരി റീച്ചിലെ ദേശീയ പാതയിൽ കുതി രാൻ തുരങ്കം ഒരാഴ്ച്ചക്കകം ഗതാഗത യോഗ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനി തൃശൂർ ജില്ലാ കലക്ടർക്ക് ഉറപ്പ് നൽകി ഗതാ ഗത പ്രശ്നം പരിഹരിക്കുന്നതിലെ വീഴ്ച്ച തുടർന്നാൽ നിർമ്മാണ കമ്പനിക്കെതിരെ കേസെടുക്കാമെന്ന് കലക്ടർ വ്യക്തമാക്കിയി രുന്നു കഴിഞ്ഞ ജനുവരിയിൽ തുരങ്കം ഗതാഗത യോഗ്യമാക്കു മെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് തുരങ്കത്തിലെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അഖിലേന്ത്യാ ഒഫ്തോൾമോളജിക്കൽ സൊസൈറ്റി യുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കണ്ണൂരിൽ ആധുനിക നേത്രചികിത്സ രംഗത്തെ മുന്നേറ്റങ്ങളെ ക്കുറിച്ച് ദേശിയ സിമ്പോസിയം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

ജില്ലാ ആസൂത്രണ സമിതി ഈ സംയോജിത പദ്ധതിക്ക് ഡിപിആർ തയ്യാ റാക്കാൻ വിവിധ വകുപ്പ് തലവൻമാർക്ക് ചുമതല നൽകിയിട്ടു ണ്ട് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാ ക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ്എഫ്ഐ വ്യാപകമായ അക്രമം നടത്തുകയാണെന്ന് എബിവിപി സംസ്ഥാന സെക്രട്ടറി വി മനു പ്രസാദ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എബിവിപിക്ക് കോളേജ് ക്യാമ്പസുകളിൽ വലിയ പിന്തുണ ലഭി ക്കുന്നതിൽ വിറളി പൂണ്ടാണ് എസ്എഫ്ഐ അക്രമം അഴിച്ചുവി ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു